നിർണ്ണായക മുന്നണി ചർച്ചകൾ ് അന്തിമ ഘട്ടത്തിൽ

പുരോഗമിക്കുന്നു രണ്ടാം ഘട്ട വാക്ട്സിൻ യജ്ഞത്തിന് രാജ്യത്തുടനീളം ന് മികച്ച പ്രതികരണം വാക്സിൻ സ്വീകരിച്ച് രാഷ്ട്രപതിയും

പ്രചാരണങ്ങൾ തള്ളണമെന്ന് ജനങ്ങളോട് മുഖൃമന്ത്രി

പാർട്ടി നേതാവ് പി

ഇന്ന് ലോക വന്യജീവി ദിനം

ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം ലക്ഷ്യമിട്ടാണ് മുന്നണികൾ രംഗത്തിറങ്ങുന്നത്

ഐ യുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഇന്ന് അന്തിമ തീരുമാനമായേക്കും

എമ്മീൽ സ്ഥാനാർത്ഥി ചർച്ച അവസാന ഘട്ടത്തിലാണ് കോൺഗ്രസ്സുംക്കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗവും സീറ്റ് വിഭജ്ജത്തീൽ ചർച്ചകൾ തുടരുകയാണ്

ഡി എഫ് ഏക്കോപന സമിതി യോഗം ഉച്ചതിരിഞ്ഞ് തിരുവനന്തപുരുത്ത് ചേരും ബിജെപി ബി ഡി ജെ

പുതുതിൽമുറയിൽപ്പെട്ടവരെ മത്സര രംഗത്ത് കൊണ്ടുവരാൻ മുന്നണികൾ തയ്യാറെടുക്കുമ്പോഴും അനുഭവ സമ്പത്തും പൊതുസമ്മതിയും നേടിയവർ മത്സരിക്കണമെന്ന അഭിപ്രായം ശക്തമാവുകയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായ പി

ജെ കുര്യൻ വി

സുധീരൻ എന്നിവർ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു

അതേസമയം പ്രമുഖരെ കളത്തിലിറക്കാനാണ് എൻ ഡി എ യുടെ തീരുമാനം

ഡി എഫ് പ്രചാരണത്തിന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി നേതൃത്വം നൽകും

ഇതോടനുബന്ധിച്ച് കൂടിക്കാഴ്ചകളും പൊതുസമ്മേളനങ്ങളും റോഡ് ഷോകളും ഉണ്ടാവുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു

കെ പാട്ടീലാണ് സമിതി ചെയർമാൻ

ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കെ

സി സി അദ്ധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതിപക്ഷ നേതാവ് രമേശ് പ്ലെന്നിത്തല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടങ്ങിയവർ സ്മീതിയിൽ അംഗങ്ങളായിരിക്കും

എൻ ജയദേവന്റെ അദ്ധ്യക്ഷതയിൽ ചേരുന്ന ്യോഗത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നിർവ്വാഹക സമിതി അംഗം കെ

വിജയ യാത്ര ആലപ്പുഴ അഴിമതി വിരുദ്ധം പ്രീണന വിരുദ്ധം സമഗ്ര വികസനം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ബിജെപി സംസ്ഥാന അദ്ധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ യാത്ര ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടങ്ങി രാവിലെ ജില്ലാ അതിർത്തിയായ തണ്ണീർമുക്കത്ത് വിജയ യാത്രയെ മുതിർന്ന നേതാക്കൾ വരവേറ്റു വൈകിട്ട് നാലിന് ഹരിപ്പാട്ടും പിന്നീട് മാവേലിക്കരയിലും ചെങ്ങന്നൂരിലും വിജയയാത്രയ്ക്ക് വരവേൽപ്പ് നൽകും ചെങ്ങന്നൂരിൽ നടക്കുന്ന ജില്ലാതല സമാപന സമ്മേളനം യുവമോർച്ച ദേശീയ അദ്ധ്യക്ഷൻ തേജസ്വി സൂര്യ എം

കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുഖ്യ പ്രഭാഷണം നടത്തും

ഡി എഫിന് ആധിപതൃം നിലനിൽക്കുന്ന ആലപ്പുഴ ജില്ലയിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുക്കുകയാണ് മൂന്ന് മുന്നണികളും വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി ആർ

ച്ട്ടലംഘനം കണ്ടാൽ അത് മൊബൈൽഫോണിൽ പ്പകർത്തി സി വിജിൽ വഴി ജില്ലാ തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിൽ അയച്ചാൽ അതത് നിയമസഭാ മണ്ഡലങ്ങളിലെ സ്കാഡുകൾക്ക് സന്ദേശം കൈമാറും

തിങ്കളാഴ്ച രാജ്യത്തെ മുതിർന്ന പൌരന്മാർക്ക് വാക്സിൻ നൽകുന്ന രണ്ടാംഘട്ടത്തിൽ പ്രധാനമന്ത്രിയും നിരവധി കേന്ദ്രമന്ത്രിമാരും വാക്സിൻ സ്വീകരിച്ചിരുന്നു രണ്ടാം ഘട്ടത്തിന്റെ ആദ്യദിനത്തിൽ അഞ്ചര ലക്ഷത്തിലധികം പേർക്കാണ് വാക്സിൻ നൽകിയത്

പല കേന്ദ്രങ്ങളിലും പ്രതീക്ഷിച്ചതിലും കൂടുതൽ പേരാണ് വാക്സിൻ സ്വീകരിക്കാനെത്തുന്നത്

വാക്സിൻ കുത്തിവയ്പ്പ് ശാസ്ത്രീയമാണ് ഇതിനോട് എല്ലാവരും സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോടഭ്യർത്ഥിച്ചു

ഇന്നലെ മന്ത്രിമാരായ കെ

ശൈലജ ഇ

വാക്സിൻ സ്വീകരിച്ചവർക്ക് പാർശ്ചക്കല്ങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയ്യിച്ചു

സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും കോവിഡ് പ്രതിരോധ മരുന്ന് അനിയന്ത്രിതമായി സൂക്ഷിക്കുകയോ പൂഴ്ത്തിവയ്ക്കുകയോ ചെയ്യരുതെന്നും കർശന നിർദ്ദേശമുണ്ട്

സിംഹങ്ങൾ കടുവകൾ പുള്ളിപ്പുലികൾ എന്നിങ്ങനെ വിവിധ മൃഗങ്ങളുടെ എണ്ണം ഇന്ത്യയിൽ ക്രമാനുഗതമായി ഉയരുകയാണ് നമ്മുടെ വനങ്ങളുടെ സംരക്ഷണവും മൃഗങ്ങളുടെ സുരക്ഷിതമായ ആവാസ വൃവസ്ഥയും ഉറപ്പാക്കാൻ സാധ്യമായതെല്ലാം നാം ചെയ്യണമെന്ന് പ്രപ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ ആഹ്വാനം ചെയ്തു

സി ജോർജ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനപക്ഷം ഒരു മുന്നണിയുടെയും ഭാഗമാകില്ലെന്ന് പാർട്ടി ന്യോ്വ് പി

തന്റെ മണ്ഡലമായ പൂഞ്ഞാറിൽ ്മാത്രമേ ജനപക്ഷം മത്സരിക്കൂ എന്നും അദ്ദേഹം മാധൃമങ്ങളോട് പറഞ്ഞു

മത്സര വിഭാഗത്തിൽ ഇന്ന് അഞ്ച് സിനിമകളാണ് പ്രദർശനത്തിനുള്ളത് മലയാള വിഭാഗത്തിൽ രണ്ട് ചിത്രങ്ങളുണ്ട് അർജന്റീനിയൻ സംവിധായകൻ ഫെർണാണ്ടോ സൊളാനസ് ഷാനവാസ് നരണിപ്പുഴ എന്നിവർക്ക് ആദരമർപ്പിച്ച് രണ്ട് ചിത്രങ്ങളും ഇന്ന് മേളയിൽ പ്രദർശിപ്പിക്കും